ആലത്തൂരിൽ ടി വി ബാബുവും ഇടുക്കിയിൽ ബിജു കൃഷ്ണനും മാവേലിക്കരയിൽ തഴവ് സഹദേവനും മത്സരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡണ്ട് തുഷാർ വെള്ളാപ്പള്ളി

സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ സൂര്യാഘാതത്തിനും സൂര്യാ തപത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്

കൊല്ലം ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ മുംബൈയിൽ കണ്ടെത്തി

ആലത്തൂരിൽ ടി വി ബാബുവും ഇടുക്കിയിൽ ബിജു കൃഷ്ണനും മാവേലിക്കരയിൽ തഴവ സഹദേവനും മത്സ രിക്കു മെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡണ്ട് തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ അറിയിച്ചു തൃശൂരിൽ താൻ മത്സ രിക്കുന്നത് സംബന്ധിച്ച് ബി ഡി ജെ എസ് സംസ്ഥാന കൌൺസിലാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് തുഷാർ വൃക്ത മാക്കി വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനം എൻ ഡി എയിൽ ചർച്ച ചെയ്തെടുക്കുമെന്ന് അദ്ദേഹം അറി യിച്ചു ബി ഡി ജെ എസുമായി ലോക്സഭാ സീറ്റു കാര്യത്തിൽ യാതൊരു തർക്കവും നിലവിലില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള തിരുവല്ലയിൽ വ്യക്ത മാക്കി ദേശീയ പാർട്ടി എന്ന നിലയിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയ തെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എൻ ഡി എ നേതൃയോഗം ഇന്ന് തിരുവല്ലയിൽ ചേരും

എൻ ഡി എ ഘടക കക്ഷി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നതിലെ അനിശ്ചിതത്വം തുടരുന്നു ഇക്കാരൃത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് രാജസ്ഥാനിലേക്ക് പോവുകയാണ് അദ്ദേഹം ന്യൂഡൽഹി യിൽ തിരിച്ചെത്തുന്നതുവരെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമുണ്ടാകില്ലെന്നാണ് സൂചന തീരുമാനം വൈകുന്നതിലെ ആശങ്ക കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാന്റിനെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ സ്ഥാനാർത്ഥിയായി എത്തു ന്ന തിഞ്ഞ് വയ നാട്ടിൽ നേരത്ത് പഖ്യാ പിച്ച സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പ്രചാരണ പ്രവർത്തനങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വാചകമടിയ ല്ലെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപു രത്ത് പറഞ്ഞു

മോദി ഗവൺമെന്റിന്റെ വാഗ്ദാ നങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നുവെന്ന് ഇതിനകം തെളിഞ്ഞതായി ചെന്നിത്തല ആരോപിച്ചു നിലയ്ക്കലിൽ നിരോധനാജ്ഞ ലംഘിച്ച കേസിൽ പ്രതിപ ക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് കോടതിയിൽ ഹാജരാ കും പത്തനംതിട്ട റാന്നി ഗ്രാമ നീതിന്യായ കോടതിയിലാണ് ഹാജ രാകുന്നത് കെ എസ് ആർ ടി സി എം പാനൽ ജീവനക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് വോട്ടെടുപ്പ് ദിവസം സമരം ചെയ്യു മെന്ന് എം പാനൽ കൂട്ടായ്മ അറിയിച്ചു തൊഴിൽ നൽകുമെന്ന ഉറപ്പ് ഗവ പാലിക്കാത്തതിനാൽ മൂന്നാംഘട്ട സമരം ഉടൻ ആരംഭി ക്കുമെന്നും കൂട്ടായ്മ സംസ്ഥാന സെക്രട്ടറി എം ദിനേശ് ബാബു തിരുവനന്തപുരത്ത് പറഞ്ഞു തമിഴ്നാട്ടിലെ എ ഐ എ ഡി എം കെ ടിടിവി ദിനകരൻ വിഭാഗത്തിന് പ്രഷർ കുക്കർ പൊതു തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരാകരിച്ചു ടിടിവി ദിനകരപക്ഷത്തിന് ഒരു പൊതുചിഹ്നം നൽകുന്ന കാര്യം പരിഗണക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യ ക്ഷനായ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷ്ടനോട് നിർദേശിച്ചു വിജ യിക്കുന്ന ദിനകരവിഭാഗത്തിലെ സ്ഥാനാർത്ഥികളെ കക്ഷിരഹി തരായി പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു സ്വയം വിരമിക്കൽ അപേക്ഷ സംബന്ധിച്ച നോട്ടീസ് പിരീ ഡിൽ ഇളവ് അനുവദിക്കണമെന്നാവശൃപ്പെട്ട ഡി ജി പി ജേക്കബ് തോമസിനോട് ഗവ

ഇളവ് അനുവദിക്കു ന്നതിന് കാരണം ബോധിപ്പിക്കണമെന്ന് പൊതുഭരണവകുപ്പാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അപേക്ഷ ഇ മെയിൽ വഴി അയ ച്ചതിനും ജേക്കബ് തോമസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ സൂര്യാഘാതത്തിനും സൂര്യാ തപത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനിടയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ ജില്ലകളിൽ നാളെയും മറ്റ ന്നാളും ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെയും ഉയരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർകോട്ട് ജില്ലകളിൽ മറ്റന്നാൾ വരെ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് അംഗനവാടി കുട്ടികൾക്ക് ചൂട്ടേൽക്കാത്ത സംവിധാനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവ നക്കാരും ശ്രദ്ധിക്കണമെന്നും നിർദേശിച്ചിട്ടുണ്ട് അന്തരീക്ഷ താപ്പം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകു മെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇതുമൂലം ശരീരത്തിലുണ്ടാ കുന്ന താപം പുറത്തേക്ക് കളയുന്നതിന് തടസമുണ്ടാവുകയും ശരീരത്തിന്റെ പല നിർണായക പ്രവർത്തനങ്ങളേയും തകരാറി ലാക്കുകയും ചെയ്യും

സൂര്യാതപം ഏറ്റവരുടെ ചികിത്സക്കായി ആശുപത്രികളിൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീ സർമാർക്ക് ഇക്കാര്യത്തിൽ നിർദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യ വകുപ്പ് തിരുവനന്തപുരത്ത് അറിയിച്ചു

വയനാട് വൈത്തിരിയിൽ രാവിലെ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച് തിരൂർ താനാളൂർ സ്വദേശികളായ ഉരുളിയത്ത് കഹാർ തോട്ടുമ്മൽ സാബിർ പൊൻമുണ്ടം സ്വദേശി സൂഫി യാൻ എന്നിവരാണ് മരിച്ചത് കോഴിക്കോട് മൈസൂർ ദേശീയ പാതയിൽ പഴയ വൈത്തിരിയിലായിരുന്നു അപകടം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു

ബംഗളൂരുവിൽ നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെ ട്ടത് ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് വെള്ളയാംകൂടിയിൽ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് വെള്ളയാംകുടി സ്വദേശികളായ രാജൻ ഏലിയാമ്മ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ രണ്ടുപേരെ കട്ടപ്പ നയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

പുലർച്ചെ രണ്ടു മണിയോടെ കൊടു ങ്ങല്ലൂരിലായിരുന്നു അന്ത്യം ആത്മകഥ ചാപ്റ്റേഴ്സ് ഒന്നും മിണ്ടാതെ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമാതാവായിരുന്നു പരു ന്ത് കഥപറയുമ്പോൾ തുടങ്ങി ഏഴോളം ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളറായും പ്രവർത്തിച്ചിട്ടുണ്ട്

മുബൈയിൽ നിന്നാണ് പെൺകുട്ടിയെയും ഒന്നാം പ്രതി മുഹമ്മദ് റോഷനേയും കേരളത്തിൽ നിന്നെത്തിയ അന്വേഷണ സംഘം ഇന്ന് രാവിലെ കണ്ടെത്തിയത് മുഹമ്മദ് റോഷനെ കസ്റ്റഡിയിലെടുത്തു ഇവരെ കേരളത്തിലെ ത്തിക്കുന്നതിന് നടപടി ആരംഭിച്ചു

സംഭവത്തിൽ മൂന്നുപ്പേർ നേരത്തേ അറസ്റ്റിലായിരുന്നു ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്ങ്സ് ഇന്ന് രാത്രി എട്ടിന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും ന്യൂഡൽഹി യിലെ ഫിറോസ് ഷാ കോട്ലാ സ്റ്റേഡിയത്തിലാണ് കളി

ശ്രീഹരിക്കോട്ടയിലെ സതീ ഷ്ധ വാൻ ബഹി രാ കാശ കേന്ദ്രത്തിൽ നിന്നായി രിക്കും വിക്ഷേപണം കാലാവസ്ഥക്ക് അനുസൃതമായിട്ടായിരിക്കും വിക്ഷേപണമെന്നും ഐ എസ് ആർ ഒ വൃക്തമാക്കി

അമേരിക്കയ്ക്കു പുറമെ ലിത്വാനിയ സ്പെയിൻ സിറ്റ്സർലാന്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളാണ് എമി സാറ്റിനൊപ്പം വിക്ഷേപിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ആഗമന ടെർമിനൽ പൂർണ തോതിൽ പ്രവർത്തന സജ്ജമായി കസ്റ്റംസ് എമിഗ്രേഷൻ കൌണ്ടറുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി എയർപോർട്ട് അതോറിറ്റി ചെന്നൈ റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ വൈകീട്ട് യാത്രക്കാർക്കായി ടെർമിനൽ പൂർണമായും തുറന്നു കൊടുക്കും

കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് തിരുനെൽവേലി ഇടമൺ കൊച്ചി വൈദ്യുതി ലൈൻ ഇന്നുമുതൽ ഏത് നിമി ഷവും ചാർജ് ചെയ്യുമെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലി ക്കണമെന്നും പവർഗ്രിഡ് കോർപ്പറേഷൻ റാന്നിയിൽ അറിയിച്ചു

മാടക്കത്തറ ക്കുള്ള എക്സ്ട്രാ ഹൈ വോൾട്ടേജ് വിതരണ ലൈനാണിത്

തിരുവനന്തപുരം ന്യൂ ഡൽഹി എക്സ്പ്രസ് കോട്ടയത്ത് ഒരു മണിക്കൂറും ഹൈദരബാ ദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് ഒരു മണിക്കൂർ കുറു പ്പൻതറയിലും പിടിച്ചിടും

വിചാരണ എന്ന് ആരംഭിക്കണമെന്ന് കോടതി തീരുമാനിക്കും കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരി ഗണിക്കുന്നത്

ഇവരിൽ നിന്നും നാലു കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു

കോഴിക്കോട് സ്വദേശി ജംഷിദ് ആണ് പിടിയിലായത് കൊല്ലം ബീച്ചിൽ കഴിഞ്ഞ ദ്രിവസം തിരയിൽപ്പെട്ട് കാണാ തായ ദമ്പതികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി പ്രാക്കുളം സ്വദേശി സുനിൽ ഭാര്യ ശാന്തിനി എന്നിവരുടെ മൃതദേ ഹങ്ങളാണ് കണ്ടെത്തിയത് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മലയാളികളുടെ വായ നാ താത്പരൃം തന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയെന്ന് പ്രമുഖ ഹിന്ദി ചെറുകഥാകൃത്ത് ഡോ ദിവാകർഭട്ട് കോഴിക്കോട്ട് പറ ഞ്ഞു